തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയം ഉദ്ഘോഷിക്കുന്ന ദീപാവലി വേളയിൽ വീടുകളും ക്ഷേത്രങ്ങളും പൊതുസ്ഥലങ്ങളും ദീപാലംകൃതമായി ഐശ്വരൃദേവതയായ ലക്ഷ്മിയെ വീടുകളിലേക്ക് വരവേൽക്കുന്നതിന് പൂജകളും നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐ ടി

ഉത്തരഖ്ങ്ഡില്ല രുദ്രപ്രയാഗിലുള്ള കേദാർനാഥ് ക്ഷേത്രത്തിൽ അദ്ദേഹം ആരാധന നടത്തും കേദാർപുരിയിലെ വികസ്ന് പ്രപർത്തനങ്ങൾ അദ്ദേഹം വിലയിരുത്തും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ജനങ്ങൾക്ക് ദീപാവലി ആശംസകൾ നേർന്നു മലിനീകരണമുക്തവും സുരക്ഷിതവുമാകട്ടെ ദീപാവലി എന്നവർ ആശംസിച്ചു

ഇന്ന് വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെയാണ് മുഹൂർത്ത വ്യാപാരം

ദുബൈയിൽ നടക്കുന്ന ഐ

ടി എന്നിവയുടെ ആഗോളവേദിയിൽ ഇന്ത്യയ്ക്ക് ലഭിക്കുന്ന അംഗീകാരമാണിതെന്നു കേന്ദ്ര കുമ്പ്പിണ്ക്കേഷൻ മന്ത്രി മനോജ് സിൻഹ പറഞ്ഞു

ടി അസിസ്റ്റന്റ് കമ്മീഷണറേയും മറ്റൊരാളെയും സി ബി ഐ ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തു ഡൽഹിയിലെ കരോൾബാഗ് കേന്ദ്രീകരിച്ചുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നുമാണ് ജി

ടി വകുപ്പ് ഉദ്യോഗസ്ഥർ കൈക്കൂലിവാങ്ങിയതെന്നാണ് കേസ് ഇവരിൽ നിന്ന് തെളിവില്ലാതെ ആറ് ലക്ഷം രൂപ സി

ഐ പിടിച്ചെടുത്തു

കൂടുതൽ വിവരങ്ങളുമായി തുളസീദാസ്

എന്നാൽ ഇടക്കാല തെരഞ്ഞെടുപ്പിലൂടെ ഏതെങ്കിലും ഒരു സഭയിൽ ഭരണകക്ഷിക്ക് ഭൂരിപ്രക്ഷം നഷ്ടമായാൽ അമേരിക്കൻ രാഷ്ട്രീയ സാഹചര്യം പ്രിതിസന്ധിയിലാകും ഇടക്കാല തെരഞ്ഞെടുപ്പ് ഡോണൾഡ് ട്രംപിന്റെ ജനപ്രീതിയുടെ വിലയിരുത്തലാകുമെന്നാണ് കരുതുന്നത് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇന്നുച്ചയോടെ പുറത്തു വരും ഡെമോക്രാറ്റിക് നേതാവായ ലൌ ലിയോൺ ഗ്യുരേരോ മൈക്രോനേഷ്യയിലെ ഗുവാം പ്രവിശ്യയുടെ ആദ്യ വനിതാ ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ടു രേഖപ്പെടുത്തപ്പെട്ട വോട്ടുകളിൽ അമ്പത് ശതമാനത്തിലേറെയും ഇവർക്കാണ് ലഭിച്ചത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയേയാണ് ഇവർ പരാജയപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ബിജെപിയും കോൺഗ്രസും ആദ്യഘട്ട വോട്ടെടുപ്പിൽ മൂന്ന് സ്ത്രീകളെ വീതം മത്സരരംഗത്ത് ഇറക്കിയിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ബന്ധു കരുണാ ശുക്ല കോൺഗ്രസ് നേതാവ് മഹീന്ദ്ര കർണയുടെ ഭാര്യ ദേവീ കർണ എന്നിവരും ആദ്യഘട്ടത്തിൽ മത്സരരംഗത്തുണ്ട്

ബസ്താർ റേഞ്ച് ഐ ജി വിവേകാന്ന് സിൻഹയുടേയും മറ്റ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടേയും മുൻപിലായിരുന്നു കീഴടങ്ങൽ മറ്റൊരു സംഭവത്തിൽ ബസ്താരി മേഖലയിൽ ബിജപ്പൂർ ജില്ലയിൽ ഒരു ഗ്രാമീണനെ മാവോയിസ്റ്റുകൾ കൊലപ്പെടുത്തി

അത്താഴപൂജ പൂർത്തിയാക്കി അയ്യപ്പവിഗ്രഹത്തിൽ ഭസ്മാഭിഷേകം നടത്തിയാണ് നട അടച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് ഇത്തവണ നട തുറന്നത് മുൻവർഷത്തേക്കാൾ മൂന്നിരട്ടിയിലധികം പേർ സന്നിധാനത്തെത്തി

നട തുറക്കുമ്പോൾ സന്നിധാനത്തും പരിസരത്തും പ്രതിഷേധം തുടരുന്ന സാഹചരൃത്തിൽ കോടതിയുടെ തീരുമാനം നിർണ്ണായകമാകും അതേസമയം നിലവിലെ സാഹചരൃങ്ങൾ ചർച്ച ചെയ്യാൻ ദേവസ്വം ബോർഡിന്റെ നിർണ്ണായകയോഗം ഇന്ന് ചേരും

ക്ഷേത്രങ്ങളുടെ പ്രവർത്തനം മുടക്കാനുള്ള ഇത്തരക്കാരുടെ നീക്കം വിജയിക്കാൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഡി എഫ് ജില്ലാ കമ്മറ്റി കോഴിക്കോട് സംഘടിപ്പിച്ച റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഏകദിന ടെസ്റ്റ് പരമ്പരകൾക്ക് പിന്നാലെ ട്വന്റി ട്വന്റി പരമ്പരയും ഇന്ത്യ സ്വന്തമാക്കി

എട്ട് ബൌണ്ടറിയും ഏഴ് സിക്സും ഉൾപ്പെടുന്നതാണ് ഇന്നിട്രേ്സ്

പരമ്പരയിലെ മൂന്നാമത്തേയും അവസാനത്തെയും മത്സരം ഞായറാഴ്ച ചെന്നൈയിൽ നടക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

സിന്ധു റഷ്യയുടെ യുജീനിയ കോസെറ്റ്സ്കായയെ പരാജയപ്പെടുത്തി രണ്ടാം റൌണ്ടിൽ സിന്ധു തായ്ലന്റിന്റെ ബുസനൻ ഓംഗ്ബംറുഗ്ഫനെ നേരിടും വനിതാ ഡബിൾസിൽ അശ്വിനിപൊന്നപ്പ സിക്കി റെഡ്ഡി സഖ്യം പുറത്തായി

തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് രണ്ടു മുതലാണ് മൽസരം മൂന്നു ദിവസത്തെ ചാമ്പ്യൻഷിപ്പ് വെള്ളിയാഴ്ച സമാപിക്കും

മൽസ്യത്തൊഴിലാളികൾ ഈ ഭാഗങ്ങളിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട് പോയവർ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തണം ന്യൂനമർദത്തിന്റെ ഫലമായി ഇന്നും നാളെയും വ്യാപക മഴയുടെ മുന്നറിപ്പായ യെലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

പരാതികളിൽ അന്വേഷണം ആരംഭിച്ചതായി പാകിസ്ഥാൻ ഫെഡറൽ അന്വേഷണ ഏജൻസിയുടെ സൈബർ കുറ്റകൃത്യം വിഭാഗം അറിയിച്ചു